പോലീസ് സേനയുടെ ഐക്യവും അച്ചടക്കവും ജാതി യുടെയും മതത്തിന്റെയും പേരിൽ തകർക്കാനാണ് ശ്രമമെന്നും പിണറായി കണ്ണൂരിൽ പറഞ്ഞു ഇതിനെ ഗൌരവമായി കണ്ട് ശക്തമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്

എ

എസ് പി ബറ്റാലിയനുകളിലെ സേനാംഗങ്ങളുടെ പാസിങ് ഔട്ട് പരേ ഡിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഗവൺമെന്റിനെ ജനങ്ങൾ വിലയിരുത്തുന്നത് പൊലീ സിന്റെ പ്രവർത്തനത്തിലൂടെയാണ് സമീപകാലത്തായി പൊലീസിൽ വലിയ പരിവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കു കയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജനാധിപത്യത്തിന് ചേർന്ന രീതിയിൽ പൊലീസിനെ മാറ്റിയെടുക്കാനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു

ഉയർന്ന വിദ്യാഭ്യാസ യോഗൃത നേടിയവർ പോലീസിലേക്ക് വരുന്നതോടെ സേനയുടെ മുഖഛായ മാറു മെന്ന് മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു മന്ത്രിമാരായ ഇ പി ജയരാ ജനും കടന്നപ്പളളി രാമചന്ദ്രനും ചടങ്ങിൽ പങ്കെടുത്തു

അയ്യപ്പന്റെ പൂങ്കാവനത്തെ വനമായിത്തന്നെ നിലനിർത്തണമെന്നാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നതെന്നും സൌഹാർദ്ദപരമായാണ് ശബരി മ ലയെ കാണു ന്ന തെന്നും മന്ത്രി പറഞ്ഞു

വനംവകുപ്പ് ദേവസം ബോർഡിനോട് ശത്രുതാ മനോ ഭാവം കാണിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ശബരിമലയിലെ നിർമ്മാണ പ്രവർത്തന ങ്ങൾ തട സ്സ പ്പെടുത്തുന്ന രീതിയിൽ സമീ പനം സ്വീകരിക്കുകയാണ് അവരെന്നും പത്മകുമാർ പറഞ്ഞു

നിലയ്ക്കൽ പമ്പ ഇലവുങ്ങൽ ശബരിമല സന്നി ധാനം എന്നിവിടങ്ങളിൽ ഇന്ന് അർധരാത്രി മുതൽ ചൊവ്വാഴ്ച അർധരാത്രി വരെയാണ് പൊലീസ് നിരോ ധനാജ്ഞ പ്രഖ്യാപിച്ചത് മാധ്യമ പ്രവർത്തകർക്കും നിയ ന്ത്രണം ഏർപ്പെടുത്തി തിങ്കളാഴ്ച രാവിലെ മുതൽ മാത്രമേ മാധ്യമപ്രവർത്തകരെ സന്നിധാനത്തേക്ക് കട ത്തിവിടുകയുള്ളൂവെന്ന് പൊലീസ് അറിയിച്ചു തുലാമാസ പൂജകൾക്ക് നടതുറന്നപ്പോഴുണ്ടായ സംഘർഷം മുൻനിർത്തി ഇന്ന് രാവിലെ തന്നെ പമ്പ നിലയ്ക്കൽ സന്നിധാനം എന്നിവിടങ്ങളിൽ പോലീസ് വിന്യാസം പൂർത്തിയാക്കി

പ ശബരിമല വിഷയത്തിൽ എൻ ഡി എ യുടെ രഥയാത്ര ഈ മാസം എട്ടിന് കാസർകോട്ട് നിന്ന് ആരം ഭിക്കും ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിളളയുടെ നേതൃത്വത്തിൽ ബി ഡി ജെ എസ്സിനൊപ്പമായിരിക്കും ബി ജെ പിയുടെ രഥയാത്ര

റിയണമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ കാസർകോട്ട് പറ ഞ്ഞു മതനിരപേക്ഷ കേരളത്തെ കലാപഭൂമിയാക്കരു ത് എന്ന മുദ്രാവാക്യമുയർത്തി എ ഐ വൈ എഫ് ജില്ലാകമ്മറ്റി സംഘടിപ്പിച്ച നവോ ത്ഥാന സംരക്ഷണ സദസ്സ് കാസർകോട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളം മുന്നോട്ടാണ് നടക്കേണ്ടത് മുന്നോട്ട് നടക്കുന്ന കേരളത്തെ പിന്നോട്ട് നടത്താൻ സംഘപരിവാർ നടത്തിയ ഗൂഢാലോചനയുടെ ഫലമാണ് ഇന്ന് കാണുന്ന സമരങ്ങളെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു

പി എസ് ശ്രീധരൻപിളള കണ്ഠരര് രാജീവരര് എന്നിവർക്കെതി രായ ഹർജികളിൽ തീരുമാനമെടുക്കാൻ അഡീഷണൽ സോളിസിറ്റർ ജനറലിനെ ചുമതലപ്പെടുത്തി

വരുംദിവസങ്ങളിലും അറസ്റ്റ് തുട രും ഭക്തരെയും പൊലീസിനെയും മാധ്യമപ്രവർത്തക രെയും ആക്രമിച്ചവരെ തിരിച്ചറിയുന്നതിന് ആക്രമണ ങ്ങളുടെ വിശദമായ ദൃശ്യങ്ങടങ്ങുന്ന വീഡിയോ ആൽബം അന്വേഷണസംഘം തയ്യാറാക്കി

ചാനലുകൾ പുറ ത്തുവിട്ട ദൃശ്യങ്ങളും ശേഖരിച്ചിട്ടുണ്ട്

പ്രതികൾ രാജ്യം വിടാതിരിക്കാൻ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്

അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപം കൊണ്ട ചുഴലിക്കാറ്റുകളും ആവർത്തിച്ചുള്ള ന്യൂനമർദ്ദവുമാണ് തുലാമഴ വൈകാൻ കാരണം

സാമാനൃം നല്ല രീതിയിൽ തന്നെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം ലലലലലലലലലലലല ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപറേഷൻ ജനറൽ മാനേജരായി ബന്ധുവിനെ നിയമിച്ചുവെന്ന ആരോപണം നേരിടുന്ന മന്ത്രി കെ ടി ജലീൽ രാജിവെ ക്കണമെന്ന് യൂത്ത്ലീഗ് ആവശ്യപ്പെട്ടു

അതേസമയം യൂത്ത് ലീഗ് ഉന്നയിച്ച ബന്ധുജന നിയ മന ആരോപണം മന്ത്രി കെ ടി ജലീൽ നിഷേധിച്ചു നിയമനം ബ്രന്ധുജന നിയമനമല്ലെന്നും താത്ക്കാലിക മാണെന്നും മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു

കെട്ടിട പെർമിറ്റുകൾ ഉൾപ്പെടെ ഫയലുകളിൽ അനാവശ്യ കാലതാമസം വരു ത്തുന്നുവെന്ന വ്യാപക പരാതിയെത്തുടർന്നാണ് പരി ശോധന

ഇന്നലെ രാത്രി വൈകിയും ട്രഷറികൾ പ്രവർത്തിച്ചി രുന്നു ഇന്നും ആവശ്യമെങ്കിൽ ട്രഷറികൾ കൂടുതൽ സമയം പ്രവർത്തിക്കും

പരസ്പര സമ്മതത്തോടെ യുളള ബന്ധമാണെന്ന് എം ജെ അക്ബർ പറഞ്ഞത് ശരിയല്ലെന്നും പറഞ്ഞ ഓരോ വാക്കിലും ഉറച്ച് നിൽക്കു ന്നുവെന്നും അവർ സ്ഥകാര്യ ചാനലിനോട് പറഞ്ഞു

നായകൻ വിരാട് കോഹ്ലിക്കു പകരം രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ടെസ്റ്റ് പരമ്പരയും ഏകദിന പരമ്പരയും നേടിയ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യ വിൻഡീസിനെ നേരി ടാൻ ഒരുങ്ങുന്നത്

പി രാമകൃ ഷ്ണൻ അറിയിച്ചു തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പു വരുത്തിയി ശേഷമേ തുടർ പ്രവർത്തനം അനുവദിക്കൂയെന്നും ഫാക്ടറി സന്ദർശിച്ച ശേഷം മന്ത്രി പറഞ്ഞു മലപ്പുറം ജില്ലയിലെ തിരുന്നാവായ പഞ്ചായത്ത് കുടുംബാരോഗൃകേന്ദ്രത്തിന് ദേശീയ ആരോഗൃമന്ത്രാ ലയത്തിന്റെ നാഷണൽ കാളിറ്റി അഷവറൻസ് പുരസ്കാരം ലഭിച്ചു മികച്ച സേവനലഭൃത അടിസ്ഥാനസൌകരൃം രോഗപ്രതി രോധ സംവിധാനം രോഗീസൌഹൃദ അന്തരീക്ഷം എന്നിവ അടിസ്ഥാനമാക്കിയാണ് അംഗീകാരം കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് ചീഫ് അഡീഷണൽ സെക്രട്ടറി മനോജ് ജലാനി സംസ്ഥാന ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ ചീഫ്സെക്രട്ടറി രാജീവ് സദാനന്ദന് ഇതുസംബന്ധിച്ച് കത്തുനൽകി ഈ അംഗീകാരം ലഭിക്കുന്ന ജില്ലയിലെ ആദ്യത്തെയും സംസ്ഥാനത്തെ രണ്ടാമത്തെയും കുടുംബാരോഗൃകേന്ദ്രമാണ് തിരുന്നാവായയിലേത്

രഥോത്സവ ത്തിന് മുന്നോടിയായി കല്പാ്തിയിലെ ശുചീകരണ പ്രവൃത്തികൾ ആരംഭിച്ചു പുഴയോരം മലിനപ്പെടുത്തുന്നത് തടയാൻ പ്രതേക സ്കാഡിനെയും നിയോഗിച്ചിട്ടുണ്ട്

നവജാതശിശുക്കൾ കുട്ടികൾ ആദിവാസി ജനവിഭാഗങ്ങൾ വിഷാദരോഗികൾ തുടങ്ങിയവർക്കായുളള പ്രത്യേക ആരോഗ്യ പദ്ധതിക ളുടെ ഉദ്ഘാടനവും നടക്കും

ഇതുവരെ ജില്ലയിൽ നിന്നും ഇരുപത്തിനാലായിരം മെട്രിക് ടൺ നെല്ലാണ് സംഭരിച്ചിരിക്കുന്നത് ഒന്നാം വിളയിൽ എഴുപതിനായിരം മെട്രിക് ടൺ നെല്ല് സംഭരിക്കാനാണ് സപ്ലൈകോ ലക്ഷ്യമിടുന്നത്

ജില്ലയിലെ മുഴുവൻ സഹ കരണ സംഘങ്ങളും രാവിലെ പതാക ഉയർത്തും

അബു ദാബിയിലേക്കും ്തിരിച്ചും എയർ ഇന്ത്യാ എക്സ്പ്രസ് വിമാനത്തിന്റെ ടിക്കറ്റ് ബുക്കിങാണ് തുടങ്ങുന്നത്